കാലികമായ സാമൂഹൃ പ്രശ്നങ്ങളിൽ ശ്രദ്ധ ഊന്നാൻ ശാസ്ത്രജ്ഞരെ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ആഭൃന്തര കാരൃങ്ങളിൽ ഇട്ടപെടരുതെന്നും ടർക്കിയോട് ഇന്ത്യ

തയ്യാറെടുപ്പുകൾ ഊർജ്ജിതം

ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഒളിമ്പിക് യോഗൃത നേടി

സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

വിദ്യാർത്ഥികൾക്കിടയിൽ ശാസ്ത്ര സാങ്കേതികവിദ്യകൾ എത്തിക്കാൻ ഇത് സഹായിക്കും ഇന്ത്യയിലെ യുവാക്കളെ ശാസ്ത്ര രംഗത്തേയ്ക്ക് കൂടുതലായി ആകർഷിക്കേണ്ടതിന്റെ ആവശ്ചകതയും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്കിടയിൽ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള നടപടികളും അദ്ദേഹം നിർദ്ദേശിച്ചു

ലോകോത്തര നിലവാരമുളള ഉല്പ്പന്നങ്ങൾ വികസിപ്പിക്കാൻ പരമ്പരാഗത അറിവുകളും ആധുനിക ശാസ്ത്രവും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ രാജ്യത്തെ ശാസ്ത്രജ്ഞർ ശ്രദ്ധിക്കണമെന്നും പ്രധാനമന്ത്രി ആഹാനം ചെയ്തു

ന്യൂസ് ഡെസ്ക് ആകാശ്യവാണി

ജമ്മു കശ്മീർ ഇന്ത്യയുടെ അവിഭാജൃ ഘടകമാണെന്ന് വിദേശകാരൃ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു പാകിസ്ഥാൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിലാണ് ടർക്കി പ്രസിഡന്റ് കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിന് വിരുദ്ധമായ അഭിപ്രായ പ്രകടനം നടത്തിയത്

ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ടർക്കി ഇടപെടരുതെന്നും ശ്രീ

ടർക്കി പ്രസിഡന്റ് എർദൊയാന്റെ കശ്മീരിനെ സംബന്ധിച്ച പ്രസ്താവനയെ കുറിച്ചുള്ള ചോദൃത്തിന് മറുപടി പറയുകയായിരുന്നു ശ്രീ രവീഷ്കുമാർ

വിവിധ മേഖലകളിലെ വായ്പാ ലഭ്യതയിൽ സമീപ ഭാവിയിൽ തന്നെ പുരോഗതി ഉണ്ടാകുമെന്ന് ആർ

ഐ

രാജ്യത്ത് ആവശ്യത്തിനുള്ള പണലഭ്യത റിസർവ് ബാങ്ക് ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിരക്കുകളിൽ വരുത്തിയ ഇളവുകളുടെ ഗുണഫലങ്ങൾ സാവധാനം ജനങ്ങളിലേയ്ക്ക് എത്തിച്ചേരുന്നുണ്ട്

അടുത്ത വർഷം ലക്ഷ്യമിടുന്ന ആറ് ശതമാനം വളർച്ച സാമ്പത്തിക സർവ്വേയുടെ ചുവട് പിടിച്ചാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്നും ആർ

ഐ ഗവർണർ അറിയിച്ചു

സംഗമത്തിന്റെ പ്രചരണാർത്ഥം തിങ്കളാഴ്ച മുതൽ രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിൽ റോഡ്ഷോകൾ നടക്കും

അന്താരാഷ്ട്ര തലത്തിലും റോഡ്ഷോകൾ നടത്താൻ ആലോചനയുണ്ട്

ബി എസ് ഇ

പരീക്ഷാർത്ഥികളുടെ സൌകര്യാർത്ഥം പ്രധാന പരീക്ഷകൾക്കിടയിൽ ഇക്കൊല്ലം ഇടവേളകൾ ഉറപ്പാക്കിയിട്ടുണ്ട് ദേശീയ അന്തർദേശീയ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ പിന്നീട് നടത്താനും ബോർഡ് അനുവദിച്ചിട്ടുണ്ട് രക്തസാക്ഷിത്വം വഹിച്ചു സൈനികരുടെ മക്കൾക്ക് ആവശ്യമെങ്കിൽ പരീക്ഷാ തീയതി വേദി എന്നിവ പുരുക്കിമീകരിക്കാനും ഇളവ് നൽകിയിട്ടുണ്ട് പ്രത്യേക പ്രിഗ്ണന ആവശ്യമുള്ള കുട്ടികൾക്കായി സൌകര്യങ്ങളുട് ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്

സന്തോഷത്തോടെയും മാനസിക സംഘർഷങ്ങൾ ഇല്ലാതെയും പരീക്ഷയെ സമീപിക്കാൻ അദ്ദേഹം വിദ്യാർത്ഥികളെ ആഹാനം ചെയ്തു മാസങ്ങളായി വിദ്യാർത്ഥികൾ നടത്തുന്ന തയ്യാറെടുപ്പുകൾ തീർച്ചയായും അവരെ വിജയത്തിലെത്തിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ഇത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവിധം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ചു കൊച്ചിയിൽ കൃതി പുസ്തകോത്സവത്തോടനുബസ്സിച്ച് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ സംബ്ലിസ്മിച്ച സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമിന്റി

ഇക്കാര്യത്തിൽ ഒരു പ്രിപ്ത്യേക മതവിഭാഗത്തെ ഒഴിവാക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ തച്ചങ്കരിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിങ്കളാഴ്ച തോക്കുകൾ പരിശോധിക്കും

മധ്യപ്രദേശ് കേരളം സിക്കിം എന്നീ സംസ്ഥാനങ്ങളുടെ അധ്യക്ഷൻമാരായി യഥാക്രമം വിഷ്ണുദത്ത് ശർമ്മ കെ

കേരളത്തിൽ ്ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന പ്പ്പി

ശ്രീധരൻപിള്ള മിസോറാം ഗവർണ്ണറായി നിയമിതനായ ശ്രേഷം ് മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സുരേന്ദ്രനെ സംസ്ഥാന്ന അധ്യക്ഷനായി നിയമിക്കുന്നത്

നരേന്ദ്രമോദി സർക്കാരിന്റെ നയം പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രപതി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ ഉൾപ്പെടുത്തിയത്തിലൂട്ടെ ഗുരുദേവ നടപ്പിലാക്കാനുള്ള പ്രതിബ്ദ്ധീതയാണ് വൃക്തമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ശിവിശി ധർമ്മസംഘത്തിന്റെ അധ്യക്ഷൻ സ്വാമി വിശുദ്ധാനന്ദിയ് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചതും ഗുരുദേവന്റെ ദർശനങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ആദരവിന്റെ സൂചനകളാണെന്നും കേന്ദ്രമന്ത്രി മാടമൺ പറഞ്ഞു

വിമതർക്ക് സ്വാധീനമുള്ള പ്രദേശത്ത് സൈനിക നടപടികൾ ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഹെലികോപ്റ്റർ വെടിവച്ചിട്ടത്